രാജ്യത്തെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വൃവസായങ്ങളെ സഹായിക്കുന്നതിനുള്ള കർമ്മപദ്ധതിയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും

മധ്യപ്രദേശ് മിസോറാം നിയമസഭാ ന് തെരഞ്ഞെടുപ്പുകൾക്കായുള്ള വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും

ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് പൂനെ സിറ്റി എഫ് സി യെ നേരിടും

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹി വിജ്ഞാൻഭവനിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവ്വഹിക്കും

വ്യവസായങ്ങളെ ഗവൺമെന്റും സാമ്പത്തിക സ്ഥാപനങ്ങളും മറ്റ് മേഖലയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വിവിധ ഈ സൌകര്യങ്ങൾ സംബന്ധിച്ച് വ്യവസായികൾക്ക് അവബോധം നൽകാൻ കേന്ദ്രമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും ചടങ്ങിൽ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും വകുപ്പ് മന്ത്രി ഗിരിരാജ് സിങ്ങും പങ്കെടുക്കും

മുഖ്യതെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം വിലയിരുത്തി മാവോയിസ്റ്റ് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ കേന്ദ്ര സായുധ പൊലീസ് സേനയെ വിന്യസിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പി റാവത്ത് മാന്യമ ഒ പ്രവർത്തകരോട് പറഞ്ഞു

ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്ന പാർട്ടിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷമാണ് പട്ടിക പുറത്തിറക്കിയത്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർട്ടി അധ്യക്ഷൻ അമിത് ഷാ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് അരുൺ ജെയ്റ്റ്ലി സുഷമാ സ്വരാജ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു

വെങ്കയ്യനായിഡു അഭിനന്ദിച്ചു

ഇന്നലെ ഗബ്റോണിൽ നടന്ന് ചെട്ങ്ങിൽ ബോട്സ്വാനയിലെ ഇന്ത്യൻ വംശജരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

നായിഡു വിശദീകരിച്ചു കേന്ദ്രസഹമന്ത്രി ക്രിഷൻ പാൽ ഗുർജാറും ചടങ്ങിൽ സന്നിഹിതനായിരുന്നു

മധ്യപ്രദേശ് ഗുജറാത്ത് പട്ന ത്രിപുര ഹൈക്കോടതികളിലെ ചീഫ് ജസ്റ്റിസുമാരായ ഹേമന്ദ് ഗുപ്ത അജയ് രസ്തോഗി എം ആർ ഷാ ആർ

പട്നയിൽ വൈദ്യുത വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ നേട്ടം കൈവരിക്കുന്ന രാജൃത്തെ എട്ടാമത്തെ സംസ്ഥാനമാണ് ബീഹാർ എന്നും ശ്രീ നിതീഷ് അറിയിച്ചു

ഇന്നലെ രാത്രി എട്ടുമണിക്ക് കിഷ്ത്വാൾ ജില്ലയിലെ ഇവരുടെ വീടിന് സമീപമായിരുന്നു സംഭവം കടയിൽ നിന്നും മടങ്ങി എത്തിയ ഇരുവരെയും തൊട്ടടുത്തു നിന്നും അക്രമികൾ വെടിവയ്ക്കുകയായിരുന്നു കൊലപാതകത്തിന് പിന്നിൽ ആരെന്ന് വ്യക്തമായിട്ടില്ല വെടിയ്യേറ്റ ഉടൻ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചു പ്രദേശൃത്ത് കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊലീസ് പ്രതികൾക്കായി വ്യാഷ്ക് അന്നേഷണം തുടങ്ങി സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തർമന്ത്രി രാജ്നാഥ് സിംഗ് നടുക്കവും ദുഃഖവും രേഖപ്പെടുത്തി കുറ്റവാളികളെ പിടികൂടാൻ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് അറിയിച്ചു

സംഭവത്തെ അസം മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ അപലപിക്കുകയും കുറ്റവാളികൾക്കെതിരെ ശക്തമായ പൊലീസ് നടപടിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു

സംസ്ഥാന മന്ത്രിമാരായ കേശബ് മഹാന്ത പരിമൾ ശുക്സ ബൈദ്യ എന്നിവർ ഇന്ന് സംഭവസ്ഥലം സന്ദർശിച്ച് പ്രദേശവാസികളുമായി ആശയവിനിമയം നടത്തും സാധാരണക്കാർക്കെതിരായ ഈ ആക്രമീണ്ണത്തിനെതിരെ നിരവധി സംഘടനകൾ രംഗത്ത് എത്തിയിട്ടുണ്ട്

ചരക്ക് സേവന നികുതി നിലവിൽ വന്നതിനുശേഷം ഇത് രണ്ടാംതവണയാണ് നികുതി വരുമാനമായി ഒരുലക്ഷം കോടിയിലേറെ ലഭിക്കുന്നത് കഴിഞ്ഞ ഏപ്രിലിലായിരുന്നു ഇതിന് മുൻപ് ഈ നേട്ടം സ്വന്തമാക്കാനായത് കുറഞ്ഞ നിരക്കുകളും അധികൃതരുടെ ഭാഗത്ത് നിന്നുള്ള ഇടപെടലുകളിൽ കുറവ് വന്നതും ചരക്ക് സേവന നികുതിയുടെ കീഴിലുള്ള വരുമാനം വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയതായി ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി നിരീക്ഷിച്ചു

വിദ്യാർത്ഥികൾക്കിടയിൽ പ്രസ്റ്റ്വികമേഖലയോടുള്ള താൽപര്യം വർദ്ധിപ്പിക്കുക ഐ എൻ എസ് വിരാടിന്റെ ചരിത്ര നേട്ടങ്ങൾ പുതിയ തലമുറയ്ക്ക് പ്രിചയപ്പെടുത്തുക എന്നിവ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് സംസ്ഥാന ഗവൺമെന്റ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു

ജപ്പാനിൽ വിവിധ മേഖലകളിൽ നിലനിൽക്കുന്ന കടുത്ത തൊഴിലാളി ക്ഷാമം നേരിടുന്നതിനാണ് ഇത് ബിൽ ഇനി പാർലമെന്റിന് മുന്നിൽ അവതരിപ്പിക്കും അതേസമയം പ്രതിപക്ഷവും പ്രധാനമന്ത്രി ഷിൻസോ ആബേയുടെ പാർട്ടിയിൽ നിന്നുള്ള ഏതാനും അംഗങ്ങളും ബില്ലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ വിവിധ വാണിജ്യനേതാക്കൾ ബില്ലിനെ സ്വാഗതം ചെയ്യുന്നു വിവിധ മേഖലകളിൽ നൈപുണ്യമുള്ള വിദേശ പൌരൻമാർക്ക് അഞ്ച് വർഷത്തേക്ക് ജപ്പാനിൽ ജോലി ചെയ്യാൻ ബിൽ വൃവസ്ഥ ചെയ്യുന്നു

അതേസമയം ഏതാനും മേഖലകളിൽ വർദ്ധിച്ചു യോഗ്യതയുള്ള വിദേശ പൌരൻമാർ വളരെ കഠിനമായിട്ട് ഒരു ജാപ്പനീസ് ഭാഷാ പരീക്ഷയിൽ വിജയിക്കൂക്കിയാണ്ണെങ്കിൽ അവരുടെ വിസാ കാലാവധി കാലപ്പരിക്രിയില്ലാതെ നീട്ടാനും തുടർന്ന് സ്ഥിരതാമസത്തിനുമുള്ള് വ്യവസ്ഥയും ബില്ലിലുണ്ട്

പൂനെ സിറ്റി എഫ് സി യാണ് കേരളത്തിന്റെ എതിരാളികൾ കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

ഇതാണ് ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഇതുവരെയുള്ള പ്രകടനം നിലവിൽ വെറും ആറ് പോയിന്റുമായി പട്ടികയിൽ ഏഴാം സ്ഥാന്ദത്താണ് ടീം

അതുകൊണ്ട് തന്നെ പ്ടൂക്കെയിരെ ത്രസിപ്പിക്കുന്ന ഒരു വിജയം നേടി സമനിലകളുടെ ഈ കുരുക്ക് പൊട്ടിച്ചെറിയാനാണ് കേരളം ലക്ഷ്യമിടുന്നത് എന്നാൽ കളിച്ച നാല് കളികളിൽ ഒന്നിൽ പോലും വിജയം നേടാൻ പൂനെയ്ക്ക് കഴിഞ്ഞിട്ടില്ല വെറും ഒരു പോയിന്റുമായി പട്ടികയിൽ അവസാന സ്ഥാനത്താണ് പൂനെ

സമനിലകളുടെ കുരുക്ക് പൊട്ടിക്കാൻ കേരളവും വിജയക്കുതിപ്പിന് തുടക്കമിടാൻ പൂനെയും ശ്രമിക്കുമ്പോൾ ഇന്നത്തെ മത്സരം കാണികൾക്ക് മികച്ച അനുഭവം നൽകുമെന്ന് ഉറപ്പ് ന്യൂസ് ഡെസ്ക് ആകാശവാണി